പത്രികാസമർപ്പണം പുരോഗമിക്കുന്നു

മുന്നണികൾ ഘടകകക്ഷി സ്റ്റിറ്റുകളിൽ തീരുമാനം വൈകുന്നു

ഉത്തരവിൽ സർക്കാർതിന്റെ വിശദീകരണം തേടി ഹൈക്കോടതി

തുടങ്ങാൻ രണ്ടു ദിവസം ബാക്കി നിൽക്കെ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ

ആദ്യ സ്മാർട്ട് ബസ് കൊച്ചിയിൽ സർവ്വീസ് ആരംഭിച്ചു

പത്രികാസമർപ്പണത്തിന് കോവിഡ് മാനദണ്ഡങ്ങൾ നിർബന്ധമാണ്

പോളിംഗ് സമയം ഒരുമണിക്കൂർ ദീർഘിപ്പിച്ചിട്ടുണ്ട്

തിരുവനന്തപുരം കോർപ്പറേഷനിൽ എൽഡിഎഫിലെ സിപിഐഎമ്മും സിപിഐയും ഇതിനോടകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കേരളാകോൺഗ്രസ് മാണി ജനതാദൾ ഐഎൻഎൽ തുടങ്ങിയ കക്ഷികൾക്ക് നൽകിയ വാർഡുകളിൽ സ്ഥാനാർത്ഥികൾ അന്തിമമായിട്ടില്ല

ഇന്ന് വൈകുന്നേരത്തോടെ സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കാമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികൾ

സ്ത്രീവോട്ടർമാരാണ് കൂടുതൽ

കൊച്ചി കോർപ്പറേഷനിലേക്കും ജില്ലാപഞ്ചായത്തിലേക്കും ഗ്രാമപഞ്ചായത്തിലേക്കുമുളള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു

യുഡിഎഫിന്റെ സീറ്റു വിഭജനചർച്ച അന്തിമഘട്ടത്തിലാണ് രണ്ടു ദിവസത്തിനുള്ളിൽ സീറ്റു വിഭജനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് യുഡിഎഫ്

ഭൂരിഭാഗം ഇടങ്ങളിലും സ്ഥാനാർത്ഥിനിർണയം പൂർത്തിയാകുന്ന തേയുള്ളൂ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ എൻ ഡി എ യുടെ സീറ്റ് വിഭജനം മാത്രമേ പുർത്തിയായുള്ളു പക്ഷേ സ്ഥാനാർത്ഥി നിർണയം വൈകുന്നു

വിശദാംശങ്ങളുമായി ആകാശവാണിക്കൂപ്പേണ്ടി പത്തനംതിട്ടയിൽ നിന്നും ബിജി വർഗ്ഗീസ്

കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ച് നടക്കുന്ന തീർത്ഥാടനത്തിൽ ഭക്തർക്ക് ഇടത്താവളങ്ങളിൽ വിരിവയ്ക്കാനോ ദീർഘനേരം വിശ്രമിക്കാനോ അനുമതിയില്ല

ഉത്സവ തെരഞ്ഞെടുപ്പ് കാൽത്ത് ആരോഗ്യപ്രവർത്തകരുടെ അഭ്യർത്ഥന എല്ലാവരും മീന്റിക്കണമെന്ന് അർജുന അവാർഡ് ജേതാവായ ഇന്ത്യൻ ക്രവോളിബോൾ താരം ടോം ജോസഫ് ആകാശവാണിയോട് പറഞ്ഞു

കോവിഡ് നിയന്ത്രണങ്ങളെ തുടർന്ന് തേരുത്സവം ചടങ്ങുകൾ മാത്രമായാണ് നടക്കുന്നത്

ദീപാവലിക്കു രാത്രി എട്ടിനും പത്തിനും ഇടയിൽ മാത്രമേ പടക്കം പൊട്ടിക്കാൻ പാടുള്ളൂ

കൊല്ലം ആലപ്പുഴ തൃശ്ശൂര് ഷൊർണ്ണൂർ കണ്ണൂർ കാസർക്ട്രോസ്ട് സ്റ്റേഷനുകളിലെ സ്റ്റോപ്പാണ് പുനഃസ്ഥാപിച്ചത്

ശസ്ത്രക്രിയ വിജയകരമായെന്ന് ഡോക്ടർമാർ അറിയിച്ചു

നിശ്ചിത സമയത്ത് ഇരുടീമുകളും ഓരോ ഗോളുകൾ നേടി ചൊവ്വാഴ്ച ലിമയിൽ വച്ചു നടക്കുന്ന മത്സരത്തിൽ അർജ്ജൻ്റീന പെറുവിനെ നേരിടും